ശിവസേന അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കും ബി ജെ ഡി ചർച്ച ബഹിഷ്കരിച്ചു

തെലുഗുദേശം പാർട്ടിയിലെ കെ ശ്രീനിവാസൻ തുടങ്ങിവെച്ചു അവിശ്വാസ പ്രമേയം പാർട്ടിയിലെ മറ്റൊരംഗമായ ജയദേവ് ഗല്ല യാണ് സഭയിൽ അവതരിപ്പിച്ചത് ആന്ധ്രാ പ്രദേശിന് പ്രത്യേക പദവി പശുവിന്റെ പേരിൽ ഉണ്ടാകുന്ന അക്രമസംഭവങ്ങളും കൊലപാതകങ്ങളും സ്ത്രീകൾക്കും ദളിതർക്കുമെതിരായ അതിക്രമങ്ങൾ പട്ടിക വിഭാഗ പീഡന നിരോധന നിയമത്തിലെ ഇളവുകൾ എന്നിവ ഉന്നയിച്ചാണ് ടി ഡി പി അവിശ്വാസ പ്രമേയം കൊണ്ടു വന്നത്

പ്രമേയാവതരണത്തിന് മുമ്പുതന്നെ ബിജു ജനതാദൾ എം പിമാർ ലോക്സഭയിൽ നിന്നിറങ്ങിപ്പോയി

ശിവസേന പാർലമെന്റിൽ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു നേരത്തെ ഗവൺമെന്റിന് അനുകൂലമായി വോട്ടു ചെയ്യാൻ പുറപ്പെടുവിച്ച വിപ്പ് ഇന്നു രാവിലെ പിൻവലിക്കുകയായിരുന്നു പാർട്ടി നേതാവ് ഉദ്ധവ് താക്കറെ എം പിമാർക്ക് ഇതുസംബന്ധിച്ച നിർദേശം നൽകി യതായി ഡൽഹി റിപ്പോർട്ടുകൾ പറയുന്നു പാർലമെന്റിറി ജനാധിപത്യത്തിൽ ഇന്ന് നിർണായക ദിവസ മാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ലോക്സ ഭയിൽ എൻ ഡി എ ഗവൺമെന്റിനെതിരായ അവിശ്വാസ പ്രമേയ ചർച്ച തടസ്സങ്ങളില്ലാതെ നടക്കാൻ അവസരമൊരുക്കണമെന്ന് അദ്ദേഹം പാർലമെന്റ് അംഗങ്ങളോട് ടിറ്ററിൽ അഭ്യർത്ഥിച്ചു ഇന്ത്യ മുഴുവൻ പാർലമെന്റിനെ ശ്രദ്ധിക്കുന്ന ദിവസമാണ് ഇന്നെന്ന് പ്രധാനമന്ത്രി ലോക്സഭാ അംഗങ്ങളെ ഓർമ്മിപ്പിച്ചു അവിശ്വാസ പ്രമേയത്തിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ സാന്നിധ്യത്തിൽ മുതിർന്ന മന്ത്രിമാരുടെയും നേതാ ക്കളുടെയും യോഗം ചേർന്നു ബി ജെ പി അധ്യക്ഷൻ അമി ത്ഷായും യോഗത്തിൽ പങ്കെടുത്തു പാർലമെന്റിൽ എൻ ഡി എ ഭൂരിപക്ഷം തെളിയിക്കുമെന്നും മറ്റു ചില അംഗങ്ങൾ കൂടി ഗവൺമെന്റിന് അനുകൂലമായി വോട്ടു ചെയ്യുമെന്നും പാർലമെന്ററി കാര്യമന്ത്രി അനന്തകുമാർ അറിയി ച്ചു

അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പ്രസംഗിക്കാൻ സമയം അനു വദിച്ചതിൽ ലോക്സഭാ സ്പീക്കർ പക്ഷപാതം കാണിച്ചതായി കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു പ്രതി പക്ഷത്തിന് നൽകിയ സമയം പരിമിതമാണെന്നും പ്രതിഷേധം സ്പീക്കറെ നേരിട്ടറിയിക്കുമെന്നും ഖാർഗെ ന്യൂഡൽഹിയിൽ പറ ഞ്ഞു ചോദ്യോത്തരവേളയിൽ സമയം നൽകുന്നതുപോലെ അവി ശ്വാസ പ്രമേയ ചർച്ചയെ കാണേണ്ടതില്ല

കോൺഗ്രസ് അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പങ്കെടു ക്കാതെ വാക്കൌട്ട് നടത്തില്ലെന്ന് എഐസിസി ജനറൽ സെക്ര ട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കി പ്രതിപക്ഷത്തോ ടൊപ്പെം എത്ര കക്ഷികളുണ്ടെന്നും മോദിക്കെതിരെ സംസാരിക്കു ന്നവരെല്ലാം പ്രതിപക്ഷത്തുണ്ടോ എന്ന് വ്യക്തമാകുമെന്നും വേണുഗോപാൽ സ്ഥകാരൃ ചാനലിനോട് പറഞ്ഞു

അവി ശ്വാസ പ്രമേയം പാസായില്ലെങ്കിലും ഗവൺമെന്റിനെ ചർച്ചയിൽ തുറന്നു കാണിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു

ശശി തരൂരിന്റെ ഓഫീസിനു നേരെയുണ്ടായ ആക്രമണം അസഹിഷ്ണു തയുടെ തെളിവാണെന്നും ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാൻ പോയ സർവ്വ ക്ഷി സം ഘത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തെ ഒഴിവാക്കിയത് ബി ജെ പി സംസ്ഥാന നേതൃത്വമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു

കണ്ണന്താനത്തെ സർവ്വകക്ഷിസംഘത്തിൽ ഉൾപ്പെടുത്താത്തിൽ പ്രധാനമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ച സാഹചരൃത്തിലാണ് കാന ത്തിന്റെ വിശദീകരണം ആൾകൂട്ട കൊലപാതകങ്ങൾ തടയാൻ കർശന നടപടി സ്വീക രിക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ അറിയിച്ചു ഗവൺമെന്റ് ആശങ്കയോടെയാണ് ഇത് കാണുന്നതെന്നും ആൾക്കൂട്ട ആക്രമണങ്ങളിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ശൂന്യ വേളയിൽ കോൺഗ്രസിലെ കെ

വേണുഗോപാലാണ് പ്രശ്നം സഭയിൽ ഉന്നയിച്ചത് വ്യാജ വാർത്തകളുടെയും ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തി ലാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നതെന്നും ആഭ്യന്ത രമന്ത്രി പറഞ്ഞു മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ നിന്നിറങ്ങിപ്പോയി

ഓൾ കേരളാ ആന്റി കറ പ്ഷൻ ആന്റ് ഹ്യൂമൺ റൈറ്റ്സ് പ്രൊട്ടഷൻ കൌൺസിൽ അ ടക്കം നൽകിയ ഹർജികളാണ് തള്ളിയത് പ്രതികളെ ഒഴിവാക്കാൻ ഗവ

വിശദമായ വിലയിരു ത്തലിന് വിദഗ്ധ കേന്ദ്രസംഘം പിന്നീടായിരിക്കും സംസ്ഥാനത്ത് എത്തുക കേന്ദ്രസഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും സംസ്ഥാനഗവൺമെന്റും സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാ നത്തിലാണ് കേന്ദ്രസംഘത്തിന്റെ സന്ദർശനം

പുതുക്കാട് ചേനക്കാല വീട്ടിൽ അയ്യപ്പൻ മകൻ ബാബു എന്നി വരാണ് ഇന്നലെ രാത്രിയുണ്ടായാഅപകടത്തിൽ മരിച്ചത്

വണ്ടൂർ സ്വദേശി വർജനയുടെ മൃതദേഹമാണ് അരീ ക്കോട് ഭാഗത്ത് കണ്ടെത്തിയത് തലശ്ശേരിക്കടുത്ത തൃപ്രങ്ങോട്ടൂർ തരണ്ടപ്പുറത്ത് പുഴയിൽ വീണ് കാണാതായ ആളെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാ ണ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി പ്രസാദിനെയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ കാണാതായത് പൊലീസും അഗ്നി രക്ഷാ സേനയും നാട്ടുകാരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്

ഡീസൽ വില ഇൻഷൂറൻസ് പ്രീമിയം ടോൾ നിരക്ക് എന്നി വ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉടമകളും തൊഴിലാളികളും സമരം നടത്തുന്നത് ആവശ്യം അംഗീകരിക്കും വരെ സമരം തുട രാനാണ് ലോറി ഉടമകളുടെ തീരുമാനം കോഴിക്കോട് വടകരക്കടുത്ത കോട്ടക്കടവിൽ ഫോർമാലിൻ ചേർത്തെന്ന് കരുതുന്ന ആറു ടൺ മത്സ്യം പിടിച്ചെടുത്തു തമി ഴ്നാട്ടിലെ നാഗപട്ടണത്തു നിന്ന് കേരളത്തിൽ വില്പനക്കെത്തി ച്ചതായിരുന്നു ഇത് ആദ്യം കോഴിക്കോട്ടെത്തിച്ച വാഹനം കണ്ണൂ രിലേക്കും അവിടെ നിന്ന് മടക്കിയതിനെ തുടർന്ന് വടകരയിലും എത്തുകയായിരുന്നു

പൊലീസും ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്

ഇതോടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങ ളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും എസ് പി സി പദ്ധതി നില വിൽവരും

ഉത്തരവാദിത്വ വിനോദസഞ്ചാരമാണ് ഗവൺമെന്റ് ലക്ഷ്യമി ടുന്നതെന്നും പൊതുജനങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കണ മെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു കേരളമൊട്ടാകെ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഗവൺമെന്റിന്റെ ടൂറിസം അജണ്ടയെന്നും മന്ത്രി വ്യക്തമാക്കി കോഴിക്കോട് വയലട ഹിൽസ് പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാ ടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഭാവി കേരളത്തിന്റെ തൊഴിൽ സാധ്യതാ കേന്ദ്രങ്ങളാണ് വിനോദസഞ്ചാര മേഖല യെന്നും കടകംപള്ളി അഭിപ്രായപ്പെട്ടു

കേരള ബാങ്ക് ഓണ ത്തോടെ യാഥാർത്ഥ്യ മാക്കാനാണ് ഗവ

കേരളാബാങ്കിന് റിസർവ്വ് ബാങ്കിന്റെ അനുമതി വൈകാതെ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു പ്രാഥമിക സഹകരണ സംഘങ്ങളെ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കേരളബാങ്ക് രൂപീകരിക്കുന്നതെന്നും കടകംപള്ളി വൃക്തമാക്കി സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പതിനൊന്നാമത് രാജ്യാ ന്തര ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്ക മാകും വൈകീട്ട് കൈരളി തിയ്യറ്ററിൽ മന്ത്രി എ കെ ബാലൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള യുടെ ഉദ്ഘാടനം നിർവഹിക്കും മേളയിലെ പ്രഥമ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആനന്ദ്പട് വർധന് മുഖ്യമന്ത്രി സമ്മാ നിക്കും ഫെസ്റ്റിവൽ ബുക്ക് വി എസ് ശിവകുമാർ എം എൽ എ പ്രകാശനം ചെയ്യും

ചൊവ്വാഴ്ച സമാപിക്കും

അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പ്രൊഫ ഖന്ന ഇക്കഴിഞ്ഞ ദിവസം മന്ത്രി എ കെ ശശീ ന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തുടർന്ന് മാനേജ്മെന്റ് ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവരുമായി അദ്ദേഹം ചർച്ച നടത്തി

ചുമതല നൽകിയത് ഷുഹൈബ് വധം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷുഹൈബിന്റെ മാതാപിതാക്കൾ നൽകിയ ഹർജി സുപ്രീംകോ ടതി ഇന്ന് പരിഗണിക്കും കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്നും സംസ്ഥാന ഗവ കോടതിയിൽ സത്യവാങ്മൂലം നല്കിയിട്ടുണ്ട്

സംഭ വത്തിൽ പൂജപ്പുര പൊലീസ് അന്വേഷണം തുടങ്ങി തിരുവി താംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ത്രിവിക്രമമംഗലം മഹാ വിഷ്ണു ക്ഷേത്രത്തിൽ പുലർച്ചെയാണ് കവർച്ച നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് നാലമ്പലത്തിനുള്ളിൽ സൂക്ഷിച്ച കാണിക്ക വഞ്ചികളിൽ നിന്നാണ് പണവും നേർച്ചയായി സമർപ്പിച്ച തിരുമു ഖവും കവർച്ച ചെയ്യപ്പെട്ടത്